വർഷകാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനി ക്കും

പിതൃമോക്ഷത്തിനായി സ്നാനഘട്ടങ്ങ ളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം തുടങ്ങി

ലോക്സഭ കഴിഞ്ഞയാഴ്ച ബിൽ പാസ്സാക്കിയിരുന്നു നേരത്തെ രണ്ടുതവണ ഭൂരിപക്ഷമില്ലാത്തതിനെത്തുടർന്ന് രാജ്യസഭയിൽ ബിൽ പാസ്സാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നില്ല ഭരണപ ക്ഷത്തെ സഖ്യകക്ഷികളായ അണ്ണാ ഡി എം

യും ജനതാ ദൾ യുണൈറ്റഡും ബില്ലിനെ എതിർത്ത് സഭയിൽനിന്ന് ഇറ ങ്ങിപ്പോയപ്പോൾ ബി ജെ ഡി അടക്കം ക്ക്ഷികൾ ബില്ലിനെ പിന്തുണച്ചു

സി പി ബി

പി ടി

എസ്

പി തുടങ്ങിയ കക്ഷികൾ വോട്ടെടുപ്പിൽനിന്ന് വിട്ടുനിന്നു കോൺഗ്രസ്സിലെ ചില അംഗങ്ങളും സ്ഭയിൽ എത്തിയിരുന്നി ല്ല ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സഭ തള്ളി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോ ദിയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും നിയമമന്ത്രി രവി ശങ്കർ പ്രസാദും ഉൾപ്പെടെ പ്രമുഖർ ബിൽ പാസ്സാക്കിയ നടപ ടിയെ സ്വാഗതം ചെയ്തു നീതീകരിക്കാനാവാത്ത അനാചാര ത്തിനും അസമത്വത്തിനും അറുതി വരുത്തുന്ന ബിൽ പാസ്സാ യത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാ ണെന്ന് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു മുസ്ലിം സ്ത്രീകൾക്ക് എതിരായ ചരിത്രപരമായ തെറ്റ് തിരു ത്താൻ ബിൽ വഴി സാധ്യമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു തുല്യതയ്ക്കും ലിംഗനീതിയ്ക്കും അനുകൂല മായ ബിൽ പാസ്സാക്കാൻ സഹായിച്ച എല്ലാവരോടും അദ്ദേഹം നന്ദി പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാന പ്പെട്ട ദിവസമാണ് മുത്തലാഖ് ബിൽ പാസ്സാക്കിയ ദിനമെന്ന് ആഭ്യന്തരമന്ത്രികൂടിയായ അമിത് ഷാ അഭിപ്രായപ്പെട്ടു അതേസമയം ചരിത്രപരമായ പിഴവാണ് മുത്തലാഖ് ബിൽ പാസ്സാക്കിയതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് കോൺഗ്രസ് വില യിരുത്തി ഒറ്റത്തവണയായി മുത്തലാഖ് ചൊല്ലുന്നത് ക്രിമനൽ കുറ്റമായി പരിഗണിക്കേണ്ട ആവശൃമില്ലായിരുന്നു വെന്ന് കോൺഗ്രസ് വക്താവ് രാജ് ബബ്ബാർ പറഞ്ഞു

പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാലുടൻ ദേശീയ്പാതാ വകുപ്പ് ഉദ്യോഗ സ്ഥരും മറ്റ് വകുപ്പുദ്യോഗസ്ഥരും സംസ്ഥാനത്തെത്തി നടപ ടിക്രമങ്ങൾക്ക് അന്തിമരൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഭൂമി ലഭ്യതയുടെ കുറവ് കണക്കിലെടുത്ത് റോഡുകളുടെ രൂപ മാതൃകയിൽ പരമാവധി മാറ്റം വരുത്താമെന്ന് നിതിൻ ഗഡ്കരി അറിയിച്ചു വടക്കഞ്ചേരി തൃശൂർ ആറുവരി പാതയിലെ കുതിരാൻ തുരങ്ക നിർമ്മാണം പൂർത്തിയാക്കാൻ ബദൽ നടപടിയെടു ക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കരാറുകാർ പണി ഉപേ ക്ഷിച്ചതിനെത്തുടർന്നാണ് തുരങ്ക നിർമ്മാണം തടസ്സപ്പെട്ടത് ദ്ദ ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ തടസ്സങ്ങൾ പരിഹരി ക്കാൻ സംസ്ഥാനം അടിയന്തിര നടപടിയെടുക്കും കേരളത്തിലെ പൊലീസ് സേനയുടെ നവീകരണത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തിന് ഉറപ്പ് നൽകി മാവോയിസ്റ്റ് ഭീഷണി നേരി ടുന്ന ജില്ലകളുടെ പട്ടികയിൽ കണ്ണൂരിനെയും കോഴിക്കോടി നെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗ്രണിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു

നാളെ രാവിലെ ആറുവരെയാണ് പണിമുടക്ക് ഡോക്ടർമാ രുടെ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷ നാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഗവൺമെന്റ് ഡോക്ടർമാർക്ക് പുറമെ സ്വകാര്യ ഡോക്ടർമാരും സമര ത്തിൽ പങ്കെടുക്കും അത്യാഹിത തീവ്രപരിചരണ വിഭാഗ ത്തെയും അടിയന്തര ശസ്ത്രക്രിയകളെയും സമര ത്തിൽനിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ വർഷകാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും

യാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് തീരദേശത്തെ പമ്പു കൾ തുറന്നിട്ടുണ്ട് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തി ന് ജില്ലയിലെത്തിയ അന്യദേശ വള്ളക്കാർ മടങ്ങിപ്പോകണ മെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെട്ടു മുൻ ഡി

ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻ പിള്ള പറഞ്ഞു ജേക്കബ്ബ് തോമസ് വിഷയത്തിൽ തെറ്റ് മനസ്സിലാക്കി വിധിക്കെതിരെ അപ്പീൽ പോകാതിരിക്കുക യാണ് വേണ്ടത് സെൻകുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ച തെറ്റ് ഇനിയും ആവർത്തിക്കരുതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അഭി പ്രായപ്പെട്ടു എറണാകുളത്ത് എം

എ അടക്കം സി

ഐക്കാർക്കെ തിരെ നടന്ന ലാത്തിച്ചാർജ്ജിൽ കലക്ടറുടെ റിപ്പോർട്ടിന്റെ അടി സ്ഥാനത്തിൽ തുടർ നടപടി എടുക്കണം യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ ഉൾപ്പെട്ടവരുടെ മുൻ പരീക്ഷാ ഉത്തര ട ക്കടലാസുകൾ വീണ്ടും പരിശോധിക്കണമെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു ജലസേചനവകുപ്പിന്റെ പദ്ധതി പ്രദേശങ്ങളിലും ഡാമുക ളുടെ വൃഷ്ടിപ്രദേശത്തും സൌരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉല്പാദിപ്പിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന ചീഫ് എഞ്ചിനീയർമാരുടെ യോഗത്തിൽ തീരുമാനമായി

ബിയുമായി സഹകരിച്ച് പദ്ധതിയുടെ വിശദ രൂപ രേഖ തയ്യാറാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി അനർട്ടുമാസി സഹകരിച്ച് ജല അതോറിറ്റിയും ഇത്തരമൊരു പദ്ധതി തയ്യാറാ ക്കും

എൽ എമാരെയും കോൺഗ്രസ് പുറത്താക്കി

ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വ ത്തിന്റെ ശിപാർശ എ ഐ

വിമത എം എൽ എമാരെ കഴിഞ്ഞ ദിവസം സ്പീക്കർ അയോഗ്യരാക്കി യിരുന്നു

എമാർ സഭയിൽ ഹാജ രാവാതിരുന്നതിനെത്തുടർന്നാണ് കുമാരസ്വാമി ഗവൺമെന്റ് വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടത് ഇന്ന് കർക്കിടക വാവ് പിതൃ മോക്ഷത്തിനായി ബലിതർപ്പ ണത്തിന് സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും തുടക്കമായി ആലുവ മണപ്പുറത്തും തിരുനെല്ലിയിലും തിരുനാവായ വർക്കല തിരുവല്ലം അരുവിക്കര തിരുമുല്ലവാരം തുടങ്ങിയ കേന്ദ്രങ്ങളി ലെല്ലാം ആയിരങ്ങൾ ബലികർമ്മങ്ങൾക്ക് എത്തിയിട്ടുണ്ട് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്നര മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ഇന്ന് ഉച്ചക്ക് രണ്ടുമണി വരെയാണ് ബലിതർപ്പണം

നാഗമ്പടം മഹാദേ വക്ഷേത്രം വെണ്ണിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം തിരുനക്കര വിഷ്ണുക്ഷേത്രം എന്നിവിടങ്ങളിൽ പുലർച്ചെ നാലിന് ബലി തർപ്പണം തുടങ്ങി ഇടുക്കിയിൽ പെരിയാറിന്റെ തീരത്തെ ക്ഷേത്രങ്ങളിൽ ബലി തർപ്പണ ചടങ്ങുകൾ തുടങ്ങി അയ്യപ്പൻകോവിൽ ശ്രീധർമ്മ ശാസ്താ ്ക്ഷേത്രത്തിലാണ് കൂടുതൽ ഭക്തരെത്തുന്നത് ചപ്പാത്ത് ശ്രീധർമ്മശാസ്താക്ഷേത്രത്തിലും ബലിതർപ്പണ ത്തിനും ഒഷധക്കഞ്ഞിസേവക്കും പ്രത്യേക പൂജയ്ക്കും സൌക ര്യമൊരുക്കിക്കഴിഞ്ഞു ഹരിതീർത്ഥപുരം മഹാവിഷ്ണുക്ഷേ ത്രം ഉപ്പുതറ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ബലി തർപ്പണ ചടങ്ങുകൾ തുടങ്ങി കാസർകോട് ജില്ലയിൽ തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ അതി രാവിലെ തന്നെ ബലിതർപ്പണം തുടങ്ങി

ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തിപ്പെട്ടതിനാൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോ ടെയുമാണ് ബലിതർപ്പണം സംസ്ഥാനത്തെ സാമൂഹ്യ ആരോഗ്യ ക്യേന്ദ്രങ്ങളിൽ ക്യാൻസർ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ സജ്ജമാക്കു മെന്ന് മന്ത്രി കെ

ശൈലജ അറിയിച്ചു

പ്രളയാനന്തര കേരള സൃഷ്ടി ലക്ഷ്യമിട്ട് കൃത്യമായ പദ്ധ തികളുമായാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി എ

പാലക്കാട് തൃത്താലയിൽ പ്രവാസി ക്ഷേമ സഹകരണസംഘം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മലപ്പുറം ചേലേമ്പ്ര പഞ്ചായത്തിനെ രാജ്യത്ത് ആദ്യമായി പ്രഥമ ശുശ്രൂഷയിൽ പൂർണ്ണ സാക്ഷരത നേടിയ പഞ്ചായ ത്തായി മന്ത്രി കെ കെ ശൈലജ ഉച്ചയ്ക്ക് പ്രഖ്യാപ്പിക്കും പദ്ധതി പൂർത്തീകരണത്തിന്റെയും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടി യതിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം

വ്യാജ പരാതികളുമായി വനിതാ കമ്മീഷനെ സമീപിച്ചാൽ കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വനിതാ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി

കടലേറ്റം ശക്തമായിരുന്ന പൊന്നാനിയിലെ ഏഴിടങ്ങലിൽ അടിയന്തര കടൽഭിത്തി നിർമ്മാണത്തിന് തുടക്കമായി ഭിത്തി പൂർണ്ണമായും തകർന്ന മുറിഞ്ഞഴി ഹിളർ പള്ളി വടക്ക് തെക്കു

കൊച്ചി ധനുഷ്ക്കോടി ദേശീയപാതയിൽ ദേവികുളം ലോക്ക്ഹാർട്ട് ഗ്യാപ്പിൽ മലയിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണും പാറക്കൂട്ടങ്ങളും നീക്കുന്ന ജോലികൾ യുദ്ധകാലാടിസ്ഥാന ത്തിൽ പുരോഗമിക്കുന്നു പ്രമുഖ വിനോദ സഞ്ചാര കേന്ദ്രങ്ങ ളിൽ വൻതോതിൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഓണം സീസണ് മുമ്പായി പാത തുറന്നില്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയെ പ്രതികൂലമായി ബാധിക്കും